ഭീകരത ചെറുക്കുന്നതിന് ഇന്ത്യൂ പുതിയ നയങ്ങൾ സ്വീകരിക്കുന്നതായി പ്രധാനമന്ത്രി നൂർത്ത്ര് മോദി

ഭരണഘടനയുടെ ആമുഖത്തിന്റെ സമൂഹ വായനക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഭവനിൽ നേതൃത്വം നൽകി ഗുജറാത്തിൽ നടന്ന പ്രിസൈഡിങ് ഓഫീസർമാരുടെ എൺപതാമത് അഖിലേന്ത്യാ സമ്മേളനത്തിലും അംഗങ്ങൾ രാഷ്ട്രപതിക്കൊപ്പം ഭരണഘടന ആമുഖം വായിച്ചു ഇന്ത്യൻ ഭരണഘടന് അംഗീകരിക്കപ്പെട്ടത്തിന്റെ ഓർമ്മയ്ക്കാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത് ദേശീയ നിയമ ദിനമായും ഈ ദിവസം ആചരിക്കുന്നു

ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദർശങ്ങൾക്ക് പ്രാധാനൃം നൽകുമെന്ന പ്രതിജ്ഞയാണ് ഈ ശുഭ ദിനത്തിൽ സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു

ഭരണഘടനാ ദിനത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

സവിശേഷതകളുണ്ടെങ്കിലും കർത്തവൃങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് അദ്ദേഹം കർത്തവൃങ്ങളും അവകാശങ്ങളും പരസ്പരം പറഞ്ഞു

ഭരണഘടനയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് പ്രിസൈഡിങ് ഓഫീസർമാർക്കുള്ള സുപ്രധാനമാണെന്നും ശ്രീ

പങ്ക് അവകാശങ്ങളും കടമകളും പാലിക്കുന്നതിന് ഗാന്ധിജിയും പ്രധാനൃം നൽകിയിരുന്നു നിരവധി പ്രതിസന്ധികൾ നേരിട്ടാണ് ഭരണഘടന കരുത്താർജിച്ചത്

മുംബൈ ഭീകരാക്രമണത്തിൽ മരിച്ചവർക്ക് അദ്ദേഹം സമ്മേളനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു

രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന്രലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആണ് ഉദ്ഘാടനം ചെയ്ത്രത്

കേരള നിയമസഭയിൽ വിജയകരമായി നടത്തിയ ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിയുടെ മാതൃകയിൽ രാജ്യത്തെല്ലായിടത്തും ജനാധിപതൃ നിയമ ചർച്ചകളും അനുബന്ധ പരിപാടികളും നടത്തണമെന്നു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു

വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന പരിപാടിയിൽ ഇസ്രായേൽ നെതർലൻഡ്സ് യു കെ തുടങ്ങിയ രാജൃങ്ങളിലെ നേതാക്കൾ പങ്കെടുത്തു കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ ശേഷി രണ്ടര ഇരട്ടി വർധിച്ചതായി പ്രധാന മന്ത്രി നരേന്ദ്രമോഡി പറഞ്ഞു പുനരുപയോഗ ഉൌർജ നിക്ഷേപത്തിലൂടെ തൊഴിൽ നിരക്ക് വർധിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

സിക്കിമിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്സ് ഓഫ് ഇന്ത്യ സർവകലാശാലയുടെ പതിമൂന്നാമത് ബിരുദ ദാന സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം പകർച്ചവ്യാധിയെ വെല്ലുവിളി ആയല്ല മറിച്ച് അവസരമാര്യാണ് കാണേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു

തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുമായും പുതുച്ചേരി മുഖ്യമന്ത്രി വി നാരായണസാമിയുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി

ഇന്ത്യൻ സൈന്യത്തിന്റെ ദ്രുത കർമസേനയ്ക്കു നേരെയാണ് വെടിവയ്പ്പ് നടന്നതെന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു അക്രമികളെ പിടികൂടാനുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകൃശ്ശ് ജാവദേക്കറും ഫിൻലാൻഡ് പരിസ്ഥിതി മന്ത്രി ക്രിസ്റ്റ മിക്കോനെനും സംയുക്തമായാണ് വിർച്ചൽ ആയി ധാരണാപ്പത്രത്തിൽ ഒപ്പുവച്ചത് വായു ജല മലിനീകരണം തടയൽ മാ്ലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യിങ്ങ്ളും നടപ്പാക്കിവരുന്ന മികച്ച രീതികൾ കൈമാറ്റം ചെയ്യാനുള്ള് ഒരു അവസരം കൂടിയാണ് ഈ ധാരണപത്രം

അദ്ദേഹം വിദ്യാഭ്യാസമന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എട്ടു മാസത്തെ ഇടവേളയ്ക്കുശേഷമാണ് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം അന്താരാഷ്ട്ര മത്സരത്തിനായി കളത്തിലിറങ്ങുന്നത്

രാജ്യത്തെ അമ്പെയ്ത്ത് മത്സരങ്ങളുടെ പ്രോത്സാഹനവും നിയന്ത്രണവും ലക്ഷ്യമിട്ടാണ് നടപടി